കിർഗിസ്ഥാനിൽ അടുത്തയാഴ്ച ഷാംഗായ് സഹകരണ സംഘടനയുടെ സമ്മേളനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തില്ലെന്ന് ഇന്ത്യ

എൽ എമാർ നിയമസഭാ സ്പീക്കർക്ക് കത്ത് നൽകി

എറണാകുളം മെഡിക്കൽ കോളേജ് നിരീക്ഷണത്തിൽ കഴിയുന്ന ആറ് പേർക്കും നിപ്പ ബാധയില്ലെന്ന് സ്ഥിരീകരണം

വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ദ്വിദിന സന്ദർശനത്തിനായി നാളെ ഭൂട്ടാനിലേയ്ക്ക് പോകുമെന്നും വിദേശകാര്യ വക്താവ് അറിയിച്ചു ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോതേയ് ഷെറിംഗ് ഭൂട്ടാൻ വിദേശകാര്യമന്ത്രി തന്തി ദോർജി എന്നിവരുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തും

പ്രധാനമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷമുള്ള ആദ്യ വിദേശയാത്രയാണ് ഇത് ഇരു രാജൃങ്ങളും തമ്മിലുളള ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിനുളള ശ്രമം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭ്യാഗ്മായി ഉണ്ടാകും തുടർന്ന് ഞായറാഴ്ച പ്രധാനമന്ത്രി ശ്രീല്ക്യും സന്ദർശിക്കുന്നുണ്ട് അയൽരാജ്യങ്ങൾക്ക് ആദ്യ പരിഗണന എന്ന നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രിയുടെ മാലദ്വീപ് ശ്രീലങ്ക സന്ദർശനങ്ങളെന്ന് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ പറഞ്ഞു

ഉടനടി പ്രാബലൃത്തിൽ വരുംവിധമാണിത് കൂടുതൽ വിവരങ്ങളുമായി കവിത സുനു

വായ്പ സ്വീകരിക്കുന്നവർക്ക് കൂടുതൽ ഗുണമുണ്ടാക്കുന്ന തരത്തിൽ ധനനയത്തിൽ മാറ്റം കൊണ്ടുവരാൻ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്തദാസിന്റെ നേതൃത്വത്തിലുള്ള ധനനയ സമിതി തീരുമാനമെടുക്കുകയായിരുന്നു

വ്യാപാര യുദ്ധവും ഗ്രാമീണ മേഖലയിലെ ഉപഭോഗം കുറഞ്ഞുത്തും കാരണമാണിത് ചില്ലറവിപണിയിലെ പണപ്പെരുപ്പം ഉയ്രൂ്മെന്നും ശ്രീ

അസംസ്കൃത എണ്ണുവിലയും സാധാരണ തോതിലുള്ള മഴക്കാലം ഉണ്ടാകുമെന്ന പ്രവൃച്നവും കണക്കിലെടുത്താണിത്

ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ധനസ്ഥിരത നിലനിർത്താൻ നടപടി എടുക്കാൻ മടിക്കില്ലെന്നും ശ്രീ

ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിക്കാൻ ആർ ടി ജി എസ് എൻ ഇ

ടി എം നിരക്കുകൾ പുനരവലോകനം ചെയ്യാൻ സമിതി രൂപീകരിക്കുമെന്നും റിസർവ് ബാങ്ക് അറിയിച്ചു

ബാങ്കുകൾ തങ്ങളുടെ ചെറുകിട കോർപ്പറേറ്റ് വായ്പ നിരക്കുകൾ കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്ന് ഫിക്കി പ്രസിഡന്റ് സന്ദീപ് സോമനി അഭിപ്രായപ്പെട്ടു ഉപഭോക്താക്കളുടേയും ബിസിനസ് ലോകത്തിന്റെയും സമ്പദ് വൃവസ്ഥയിലുള്ള വിശ്വാസം പുനരുജ്ജീവിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു

എൽ എമാർ സ്പീക്കർക്ക് കത്ത് നൽകി

എൽ

എമാരുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഉത്തംകുമാർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ മുതിർന്ന കോൺഗ്രസ് നിയമസഭാംഗങ്ങൾ നിയമസഭാ മന്ദിരത്തിലെ മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തി കൂറുമാറ്റം പ്രോത്സാഹിപ്പിക്കുന്ന തെലങ്കാന രാഷ്ട്രസമിതിയുടെ നീക്കം ജനാധിപതൃ വിരുദ്ധമാണെന്ന് അവർ പറഞ്ഞു

പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനാ ഫലം പുറത്ത് വന്നതോടെയാണ് ഇത് സ്ഥിരീകരിച്ചതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു രോഗം സംശയിക്കുന്നവരുടെ സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിനും ഐസൊലേഷൻ സൌകര്യങ്ങൾ പുനരവുല്പ്പോകനം ചെയ്യുന്നതിനുമായി ഒരു സാംക്രമിക്രോ ്വിദഗ്ദ്ധൻ ഉൾപ്പെട്ട ആറംഗ സംഘത്തെ കേന്ദ്ര ആരുമ്ന്യമ്ത്രാലയം അയച്ചിട്ടുണ്ട് സാഹചര്യങ്ങൾ നിയന്ത്രണവിദ്ധേയമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശൃമില്ല് ്ലെന്നും കേരളത്തിലെ പ്രതിരോധ ചികിത്സാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയ കേന്ദ്രമന്ത്രി ഡോ ഹർഷവർദ്ധൻ പറഞ്ഞു

മലിനജല ശുദ്ധീകരണം പുനരുപയോഗം മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയാണിത്

എന്നാൽ വിലയിരുത്തൽ സർവ്വേയ്ക്ക് മുൻപ് ശുചീകരിക്കുന്ന നഗരങ്ങൾ ഇത് കഴിഞ്ഞയുടൻ പഴയ അവസ്ഥയിലേയ്ക്ക് പോകുന്നുവെന്ന പരാതിയെത്തുടർന്ന് തുടർച്ചയായ സ്വച്ഛ് സർവ്വേക്ഷൺ ലീഗ് നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഇതിലൂടെ വർഷം മുഴുവനും വൃത്തി വിലയിരുത്തും

ടോസ് നേടിയ വെസ്റ്റ് ഇ്ന്റ് ഓസ്ട്രേലിയയെ ബാറ്റിംഗിനയയ്ക്കുകയായിരുന്നു

ഹൈദ്രാബാദിലെ കേന്ദ്ര സർവകലാശാലയിൽ നിർമ്മിത ബുദ്ധി മെഷീൻ ലേണിംഗ് എന്നിവയിലെ പുതിയ മാതൃകകൾ സംബന്ധിച്ച സമ്മേളനത്തിൽ സംസാരിക്കവേയാണ് ഉപരാഷ്ട്രപതി ഇങ്ങനെ പറഞ്ഞത്

കേന്ദ്ര നഗരകാര്യ വകുപ്പിന് ഇത് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും ഒരു നിർദ്ദേശങ്ങളും ലഭിച്ചിട്ടില്ലെന്ന് ശ്രീ

മേഖലയിൽ തീവ്രവാദികൾ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സേനയും ജമ്മുകാശ്മീർ പോലീസും സി ആർ പി എഫും സംയുക്തമായി തെരച്ചിൽ ആരംഭിക്കുകയായിരുന്നു തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലത്ത് സേന എത്തിയതോടെയാണ് വെടിയുതിർക്കൽ ആരംഭിച്ചത് രണ്ടോ മൂന്നോ തീവ്രവാദികൾ മേഖലയിൽ കുടുങ്ങിയതായാണ് വിവരം കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല

മഹാറാണാ പ്രതാപിന്റെ ജീവിതം ധൈര്യത്തിന്റെയും അഭിമാനത്തിന്റെയും പ്രതീകമാണെന്നും രാജ്യത്തെ ജനങ്ങൾക്ക് തുടർന്നും ഇത് പ്രോത്സാഹനാജനകമാകുമെന്നും ശ്രീ മോദി ട്വിറ്ററിൽ കുറിച്ചു

നമ്മെ ലോകം എങ്ങന്റെ ക്ട്ണു്ന്നുവെന്നത് ജനങ്ങൾക്ക് വിഷയമല്ലെന്ന ധാരണ ശരിയുല്ലെന്നും ശ്രീ ജയ്ശങ്കർ പറഞ്ഞു

ദേശീയ ഹരിത ട്രിബ്യൂണൽ അധ്യക്ഷൻ ആദർശ് കുമാർ ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ബഞ്ചാണ് കേസ് പരിഗണിച്ചത്